മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും

ആക്രമണം ആവർത്തൂക്കുമെന്ന് കരസേനാ മേധാവി

അസ്റ്റമിലും ബീഹാറിലും പ്രളയം രൂക്ഷം

സ്മെമിൽ ്പി വി സിന്ധു ഇന്ന് ക്വാർട്ടറിൽ മത്സരിക്കും

എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളേയും സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുമെന്ന് ഗവർണറെ സന്ദർശിച്ച ശേഷം ശ്രീ യെദിയൂരപ്പ വാർത്താലേഖകരോട് പറഞ്ഞു ഡൽഹിയിൽ ബി ജെ പി നേതാക്കളുമായി ഇന്നലെ പാർട്ടി സംസ്ഥാന നേതാക്കൾ നടത്തിയ ചർച്ചുകളെ തുടർന്നാണ് മന്ത്രിസഭാ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞയ്ക്കും തീരുമാനമെടുത്തത്

പ്രതിപക്ഷ നേതാവായതുകൊണ്ട് നിയമസഭാ കക്ഷി യോഗം ചേരേണ്ട ആവശ്യമില്ലെന്ന് ശ്രീ യെദിയൂരപ്പ അറിയിച്ചു

ഇന്ത്യയ്ക്കെതിരായ പരോക്ഷയുദ്ധം പാകിസ്ഥാൻ തുടർന്നാൽ മിന്നൽ ആക്രമണം തുടങ്ങിയ മുൻകാല അനുഭവമായിരിക്കും ഫലമെന്നും ജനറൽ റാവത്ത് പറഞ്ഞു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ അതിർത്തി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ദ്രാസിൽ ആകാശവാണിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു കരസേനാമേധാവിയുടെ പ്രതികരണം സംയുക്തസേന എന്ന ആശയത്തിന് സമയമായതായും ശ്രീ

ഓർമ്മിക്കുക ആഹ്ലാദിക്കുക സ്മരണ പുതുക്കുക എന്നതാണ് ഈ പർഷത്തെ കാർഗിൽ ദിനാഘോഷത്തിന്റെ സന്ദേശം

രാജ്നാഥ് സിംഗ് കരസേനാ മേധാവി ജനറൽ ബിഷ്ൻ റാവത്ത് തുടങ്ങിയവർ ദേശീയ യുദ്ധ സ്മാരകത്തിൽ വിജയത്തിന്റെ അഗ്നിജാല പ്രകാശിപ്പിച്ച് വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു

സൈനികരോട് രാഷ്ട്രു ഏക്കാലവും കടപ്പെട്ടിരിക്കുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

കാർഗിൽ വിജയ് ദിവസ് പോരാട്ട വീര്യത്തിന്റെ സ്മരണദിനമാണെന്ന് ശ്രീ വെങ്കയ്യനായിഡു പറഞ്ഞു കാർഗിൽ യുദ്ധ വീരൻമാർക്ക് മുമ്പിൽ പ്രണമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ അറിയിച്ചു

കാർഗിൽ മലനിരകൾ സന്ദർശിക്കാനും സൈനികരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അവസരം ലഭിച്ചത് നന്ദിപൂർവ്വം സ്മരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശബ്ദവോട്ടൊടെയാണ് ബിൽ സഭ പാസാക്കിയത്

ഒരു സമുദായത്തിനും എതിരല്ല ബില്ലെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

ബീഹാറിൽ ദർഭംഗ സീതാമർഗി ജില്ലകളിലാണ് പ്രളയം കൂടുതൽ ദുരിതം സൃഷ്ടിച്ചത്

ദർഭംഗ ജില്ലയിലെ എല്ലാ ദ്ബ്ലാക്കുകളും വെള്ളത്തിലാണ് അധ്വാര നദി അപകട രേഖയ്ക്ക് മൂന്ന്ർ മീറ്റർ ഉയരത്തിലാണ് ഒഴുകുന്നത്

അസ്സമിലും പ്രളയം രൂക്ഷമാണ്

ബാർപേട്ട ബക്സ ജില്ലകൾ പൂർണമായും പ്രളയബാധിതമാണ്

ചന്ദ്ര പര്യവേഷണ ദൌത്യവുമായി സെപ്തംബർ ഏഴിനാണ് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈമാസം ആദ്യമാണ് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്

എസ് ഓഫീസർ ഗൌരവ് ദഹിയയ്ക്ക് എതിരായി ഒരു സ്ത്രീ ഉന്നയിച്ച പരാതി അന്വേഷിക്കാൻ ഐ

ഇന്തോനേഷ്യൻ താരം ടോമി സുഗിയാർട്ടോയെയാണ് പ്രണീത് നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചത്

വനിതകളുടെ സിംഗിൾസ് കാർട്ടറിൽ അഞ്ചാം സീഡായ പി വി സിന്ധു ജാപ്പനീസ് താരം അകാനെ യെമഗുച്ചിയെ നേരിടും

സംസ്ഥാന ടൂറിസം വകുപ്പിന്റെട്ടിക്കുഖ്യത്തിൽ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സ്ള്ഘടിപ്പിച്ച വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാംപ്യൻഷിപ്പ് ഉദ്ഘാട്ടുന്നു ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഔറംഗബാദ് ജില്ലയിലെ സത്നാദിയ വനമേഖലയിൽ സുരക്ഷാസേന തെരച്ചിൽ നടത്തുന്നതിനിടെ ഏറ്റുമുട്ടലിലാണ് നക്സലുകൾ കൊല്ലപ്പെട്ടത്

പ്രധാനമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റശേഷമുള്ള രണ്ടാമത്തെ മൻകി ബാത്ത് പരിപാടിയാണിത്